എ

ആവശൃത്തിന് ഹൈക്കോടതിയുടെ ഇടക്കാല സ്റ്റേ

ശാക്തീകരണത്തിനുള്ള ദേശീയിപ്പുർസ്കാരം കേരളത്തിന് വേണ്ടി മന്ത്രി കെ

ചന്ദ്രയാൻ രണ്ടിന്റെ ഭാഗിമായ വിക്രം ലാൻഡറിന്റെ ന് അവശിഷ്ടങ്ങൾ കണ്ടെത്തിയെന്ന് യു എസ് ബഹിരാകാശ ഏജൻസി നാസ

സംസ്ഥാന ഗവൺമെന്റുകളോട് ആവശ്യപ്പെട്ടു കൊല്ലത്ത് അമിതവില ഈടാക്കിയ സ്ഥാപനത്തിനെതിരെ കേസ്

കണ്ണൂരിൽ നടക്കുന്ന ദേശീയ സീനിയർ വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ ആദ്യഘട്ട മൽസരങ്ങൾ ഇന്ന് പൂർത്തിയാകും സിഎജി ഓഡിറ്റിംഗ് കിയാൽ കണ്ണൂർ വിമാനത്താവള കമ്പനിയായ കിയാലിൽ സിഎജി ഓഡിറ്റിംഗ് വേണമെന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ നോട്ടീസിന് ഹൈക്കോടതിയുടെ ഇടക്കാല സ്റ്റേ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ നോട്ടീസ് ചോദ്യം ചെയ്ത് കിയാൽ അധികൃതർ സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതി നടപടി ഹർജിയിൽ കോടതി പിന്നീട് വിശദമായി വാദം കേൾക്കും

സിഎജി ഓഡിറ്റിംഗ് വേണമെന്ന നോട്ടീസ് സ്റ്റേ ചെയ്യണമെന്ന ഹർജിക്കാരുടെ ആവശ്യവും കോടതി അംഗീകരിക്കുകയായിരുന്നു

എ ജി ഓഡിറ്റിംഗ് നിഷേധിക്കുന്നതിനെതിരേ കേന്ദ്ര ഗവ്ൺമെന്റ് മുന്നറിയിപ്പ് നൽകി കത്തയച്ചത്

ഭിന്നശേഷി പുരസ്ക്കാരം ഈ വർഷത്തെ ഭിന്നശേഷി ശാക്തീകരണ പ്രവർത്തനങ്ങളിൽ ഏറ്റവും മികച്ച സംസ്ഥാനത്തിനുള്ള ദേശീയ പുരസ്കാരം കേരളം ഏറ്റുവാങ്ങി ഡൽഹി വിജ്ഞാൻ ഭവനിൽ നടന്ന ചടങ്ങിൽ ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡുവിൽ നിന്ന് മന്ത്രി കെ

ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിനായി ക്വ്ൺമെന്റ് നടപ്പിലാക്കി വരുന്ന നൂതന പദ്ധതികൾക്കുള്ള അംഗ്രീകാരമാണ് പുരസ്കാരമെന്ന് മന്ത്രി പറഞ്ഞു

എസ്

തിരുവന്തപുരം പട്ടിണി തിരുവനന്തപുരത്ത് പട്ടിണി സഹിക്കാൻ കഴിയാതെ കുട്ടികൾ മണ്ണ് തിന്ന സംഭവം പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ തന്നെ ലജ്ജിപ്പിക്കുന്നതായി മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ

ആശുപത്രി ഡയറക്ടർ പരാതി പരിശോധിച്ച് നാലാഴ്ചയ്ക്കകം വിശദീകരണം സമർപ്പിക്കണമെന്ന് കമ്മീഷൻ അദ്ധ്യക്ഷൻ ജസ്റ്റിസ് ആന്റണി ഡൊമിനിക് ആവശ്യപ്പെട്ടു

എസ് ബഹിരാകാശ ഏജൻസി നാസ

നാസയുടെ എൽ

ഇറക്കുമതി ചെയ്യുനന ഉള്ളി മിതമായ വിലയിൽ ജനങ്ങൾക്ക് ലഭ്യമാക്കണമെന്നും കേന്ദ്ര ഗവൺമെന്റ് ആവശ്യപ്പെട്ടു ക്യാബിനറ്റ് സെക്രട്ടറി രാജീവ് ഗൌബയുടെ നേതൃത്വത്തിൽ ഇന്നലെ ചേർന്ന അവലോകനയോഗമാണ് ഇത് സംബന്ധിച്ച ആവശ്യം സംസ്ഥാനങ്ങളോട് ഉന്നയിച്ചത്

ഉള്ളിവില കൊല്ലത്ത് ഉളളിക്ക് അമിതവില ഈടാക്കിയ സ്ഥാപനത്തിനെതിരെ ലീഗൽ മെട്രോളജി വകുപ്പ് കേസെടുത്തു

നാളെ രാത്രി കോഴിക്കോട് വിമാനത്താവളത്തിലെത്തുന്ന അദ്ദേഹം മറ്റന്നാൾ മലപ്പുറം ജില്ലയിൽ വണ്ടൂർ നിലമ്പൂർ മണ്ഡലങ്ങളിൽ എത്തും

നൌഷാദ് എം

കയർ കേരള കയറിന്റെയും പ്രകൃതിദത്ത നാരുകളുടേയും അന്തർദേശീയ മേളയായ കയർ കേരളയുടെ എട്ടാം പതിപ്പിന് നാളെ ആലപ്പുഴ ഇ

എസ് സ്റ്റേഡിയത്തിൽ തുടക്കമാകും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്യും

ഇരു ടീമുകളും ശനിയാഴ്ച വൈകിട്ട് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചേരും

തിരുവള്ളൂർ വെല്ലൂർ തിരുവണ്ണാമലൈ തൂത്തുക്കുടി രാമനാഥപുരം തിരുനെൽവേലി ജില്ലകളിലാണ് ശക്തമായ മഴ അനുഭവപ്പെടുന്നത്